ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിലൂടെ കോവിഡ് രോഗവ്യാപനം പടരുന്നതിന്റെ വേഗത കുറയ്ക്കാനായതായും ആരോഗ്യമന്ത്രാലയം

അവശ്യമരുന്നുകൂൾ ്വീടുകളിൽ എത്തിച്ചു നൽകണമെന്ന് ക്ന്ദ്ര ആരോഗൃമന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണപ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി

ആരോഗൃ സേതു ലോകത്ത് ഏറ്റവും വലിയ ന് കോൺടാക്റ്റ് ട്രെയ്സിംഗ് ആപ്തിക്കേഷനായി മാറിയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോ

മത്സ്യബന്ധനത്തിന് ഇന്ന് അർധരാത്രി മുതൽ വിലക്ക്

ഇതിനു പുറമെ രോഗബാധിതരുടെയും കോവിഡ് മരണങ്ങളുടെയും എണ്ണം കുറയ്ക്കാനും ലോക്ഡൌണിലൂടെ കഴിഞ്ഞു ആരോഗൃരംഗത്ത് കോവിഡ് കേന്ദ്രീകരിച്ചുള്ള അടിസ്ഥാന സൌകര്യ വികസനം രോഗ നിർണയ പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങളുടെ വർദ്ധന വാക്സിൻ ഗവേഷണം സാങ്കേതിക മേഖലകളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ കാതലായ മുന്നേറ്റമുണ്ടാക്കാൻ ലോക്ഡൌൺ കാലത്തു കഴിഞ്ഞു വീടുകൾതോറുമുള്ള സർവേ ആരോഗ്യസേതു പോലുള്ള ആപ്തിക്കേഷൻ എന്നിവയും ലോക്ഡൌൺ കാലത്ത് സാധ്യമാക്കിയതായി ആരോഗൃമന്ത്രാലയം വൃക്തമാക്കി

നവജാത ശിശുക്കൾക്കും ശ്വാസകോശ രോഗബാധയുള്ളവർക്കുമുള്ള മരുന്നുകൾ ഉറപ്പാക്കണം പരിശോധനകൾക്ക് സംവിധാനം ഏർപ്പെടുത്തണമെന്നും മാർഗനിർദ്ദേശം വൃക്തമാക്കി

ആരോഗ്യസേതുവിന്റെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിരവധിപേർ ഇതിന്റെ പ്രയോജനം നേടുന്നുണ്ടെന്നും ഡോ

ഇത് രാജ്യത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുകയും എല്ലാ ജനവിഭാഗങ്ങൾക്കും ആശ്വാസം പകരുകയും ചെയ്യും

എ ഇ യിൽ നിന്ന് ആറു വിമാനങ്ങൾ സർവീസ് നടത്തും

ദുബായിൽ നിന്ന് കൊച്ചി കണ്ണൂർ കോഴിക്കോട് ഹൈദരാബാദ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേയ്ക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് സർവീസ്

എസ് ഇ വിദ്യാർത്ഥികൾക്ക് അവരുടെ സംസ്ഥാനങ്ങളീൽ ് തന്നെ പരീക്ഷ എഴുതാൻ സംവിധാനം ഏർപ്പെടുത്തുർമെന്ന് കേന്ദ്ര മാനവ വിഭവ ശേഷി മന്ത്രി രമേഷ് നിശ്ശാജ്ക് പൊക്രിയാൽ ജൂലൈ ഒന്നിനാണ് സി ബി എസ് ഇ യുടെ ് പത്താംക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ പുനരാരംഭിക്കുന്നത്

മത്സ്യബന്ധനത്തിന് ഇന്ന് അർധരാത്രി മുതൽ വിലക്ക് തെക്ക് കിഴക്കൻ അറബിക്കടലിലും മധ്യ കിഴക്കൻ അറബിക്കടൽ പ്രദേശത്തുമായി ന്യൂനമർദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ പ്രദേശത്തുമായി മറ്റൊരു ന്യൂനമർദം കൂടി രൂപപ്പെടുന്നു

കടലിൽ പോയവർ മടങ്ങിയെത്തുകയോ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്തെത്തുകയോ ചെയ്യണം ജില്ലാഭരണകൂടങ്ങളോടും വകുപ്പുകളോടും ആവശ്യമായ തയ്യറെടുപ്പുകൾ നടത്താൻ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശം നൽകി

ഗർഭിണികൾ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നും ആകാശവാണി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ അവർ പറഞ്ഞു

കോവിഡ് മഹാമാരിയെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചതു മുൻനിർത്തിയാണ് തീരുമാനം ഇതിനായി ടൂറിസ്റ്റ് വിസ കൈവശമുള്ളവർ പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലെന്നും സൌജന്യമായി സ്വയമേവ ഈ സേവനം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനായി സൌദിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇളവു വരുത്തുമെന്നും സൌദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു

സി ടി

മുംബൈയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യ കോടതിയാണ് ഉത്തരവിട്ടത്

ബി

നിർമാണ കമ്പനിയായ ഡി എച്ച്

വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൈക്കൊണ്ട നടപടികളാണ് വിലയിരുത്തിയത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സാമൂഹ്യ അകലം പാലിക്കാനും ശുചിത്വം ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു